ജെ

മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട്

സമ്പത്വൃവസ്ഥയുടെ അടിസ്ഥാനഘടകങ്ങൾ ദുർബലമാകാൻ ഗവൺമെന്റ് അനുവദിക്കാത്തതിനാലാണ് ഇന്ത്യ ശക്തമായി നിലനിൽക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പരീക്ഷ തട്ടിപ്പുക്കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചിതകാലയളവുകളിലേക്കായി പങ്കിടണമെന്നും അദ്ദേഹം ആവർത്തിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരുമായി പാർട്ടി തലവൻ ഉദ്ദവ് താക്കറെ ചർച്ച് നടത്തിയെന്നും അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും പിന്തുണയ്ക്കുമെന്നും എം

എ മാർ ഉറപ്പുനൽകിയെന്നും ശ്രീ

മഹാസഖ്യത്തിന് അനുകൂലമാണ് ജനവിധിയെങ്കിൽ ഗവൺമെന്റ് രൂപീകരണത്തിനായി ബി ജെ

മുൻകൈയെടുക്കാത്തത് എന്തുക്കാണ്ടാണെന്നും ശ്രീ

മന്ത്രി സ്ഥാനങ്ങൾ തുല്യമായി പങ്കിടണമെന്നും മുഖ്യമന്ത്രി പദവി പങ്കിടണമെന്നും ശിവ്സേന ആവശ്യം ഉന്നയിച്ചതോടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് രൂപീകരണം അനിശ്ചിതാവസ്ഥയിലാണ് നിലവിലെ ഗവൺമെന്റിന്റെ കാലാവധി ശനിയാഴ്ച അവസാനിക്കും മഹാരാഷ്ട്രയിൽ ബി ജെ

നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് അനുകൂലമായാണ് ജനവിധിയെന്ന് മുതിർന്ന മന്ത്രിയും ബി ജെ

സംസ്ഥാന അധ്യക്ഷനുമായ ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു

ജെ

പ്രതിനിധി സംഘം ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഗവൺമെന്റ് രൂപീകരണത്തിനുള്ള താമസവും നിയമ പ്രശ്നങ്ങളും ഗവർണറുമായി ചർച്ച ചെയ്തെന്നും ശ്രീ ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു തുടർനടപടികൾ പാർട്ടി നേതൃത്വം തീരുമാനിക്കും

തീർത്ഥാടന ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ പാക് നടപടിയിൽ ഇന്ത്യ പ്രതിഷേധിക്കുന്നതായി വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു തീർത്ഥാടനത്തിനിടെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ ഉണ്ടാവില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ഉറപ്പു നൽകിയിരുന്നതാണെന്നും അദ്ദേഹം ഇന്ത്യയ്ക്ക് ഹിതകരമല്ലാത്ത വീഡിയോയും ചൂണ്ടിക്കാട്ടി നോട്ടീസുകളും പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശനിയാഴ്ച കർതാർപൂർ സാഹിബ് ഗുരുദാരയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനം നടക്കുമെന്നാണ് പ്രതീക്ഷ

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ്

ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ റൈസിംഗ് ഹിമാചൽ എന്ന പേരിലുള്ള ആഗോള നിക്ഷേപ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ വളർച്ച ദ്രുതഗതിയിലാണ് പുതിയ ആശയങ്ങളും പുതിയ സമീപനവുമാണ് ഇതിനായി സ്വീകരിച്ചിട്ടുള്ളത് പ്രതീക്ഷയുള്ള സമൂഹവും പ്രോത്സാഹനം നൽകുന്ന ഗവൺമെന്റും എന്തിനും തയാറായ വ്യവസായ മേഖലയും പങ്കിടുന്ന വിജ്ഞാനവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് നിക്ഷേപകർക്ക് കൂടുതൽ സൌകര്യങ്ങൾ നൽകാൻ സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രദ്ധക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹിമാചൽ പ്രദേശും നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചതിൽ പ്രധാനമന്ത്രി സന്തോഷം രേഖപ്പെടുത്തി സംഗമത്തിൽ വൻ വ്യവസായികൾ ഹിമാചലിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ച് വെളിപ്പെടുത്തി ഹിമാചലിൽ നടക്കുന്ന വിവിധ വികസന പദ്ധതികൾ വിവരിക്കുന്ന പ്രദർശനവും ശ്രീ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും തയ്യാറെടുപ്പുകളെക്കുറിച്ചും ചർച്ച ചെയ്യാനായിരുന്നു യോഗം ആൾനാശം വസ്തുവകകളുടെ നാശം എന്നിവ ഒഴിവാക്കാൻ വേണ്ട സാധ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി കേന്ദ്ര ഗവൺമെന്റ് സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു കേന്ദ്ര കാലാവസ്ഥ വിഭാഗം ഡയറക്ടർ ജനറൽ ബുൾബുൾ ചുഴലിക്കാറ്റിനെക്കുറിച്ച് വിശദീകരിച്ചു

എസ് സി പൊലീസ് കോൺസ്റ്റബിൾ പരീക്ഷാ തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഗവൺമെന്റ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി അന്വേഷണത്തിൽ പ്രതികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് ഫലം കിട്ടാൻ കാലതാമസം വന്നതുകൊാണ് പോലീസിന് യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാനാകാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു

ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ പട്ടിക റദ്ദാക്കാനോ തടയാനോ വേ തെളിവില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു

തത്സമയവിവരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്

വോയ്സ് ഹിമാചൽ പ്രദേശിൽ ലഹോൾ സ്പിതി കിന്നൌർ കുളു ജില്ലകളിൽ ഇടവിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ പെയ്തു

റോതംഗ് ചുരത്തിൽ ഒരടി പൊക്കത്തിൽ മഞ്ഞ് വീണതിനാൽ വാഹന ഗതാഗതം തടസപ്പെട്ടു

തുടർന്ന് ശ്രീനഗറിനെ ജമ്മു ലഡാക്ക് മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയും ദക്ഷിണ കശ്മീരിലെ ഷോപിയാനെയും ജമ്മുവിലെ രജൌരിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയും അടച്ചു ശ്രീനഗറിൽ സീസണിലെ ആദ്യ മഞ്ഞ് വീഴ്ച ഇന്നുണ്ടായപ്പോൾ ഗുൽമാർഗ് സോണാമാർഗ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നലെ തന്നെ മഞ്ഞ് വീഴ്ചയുണ്ടായി ന്യൂസ്ഡെസ്ക് ആകാശവാണി

ആസാം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളും ശ്രീ അമിത് ഷായും ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്

പത്താമത് ഏഷ്യൻ അത്യാഹിത വൈദ്യ സേവന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയാഘാതം ബാധിച്ചാൽ ഉൾപ്പെടെ നൽകേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ പരിശീലനം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യൻ ക്രകൌശല വിദഗ്ധരുടെ ഉത്പന്നങ്ങൾ ഇ വിപണന കേന്ദ്രം വഴി ലഭ്യമാകും ഈ സംവിധാനത്തിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഉത്പന്നങ്ങൾ കണ്ടെത്താനും മൂലധനം ലഭ്യമാക്കാനും വേണ്ടി സൌകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയാണ്